പാക്കിസ്ഥാൻ റെയ്ഞ്ചർമാരുടെ അകമ്പടിയോടെ വാഗാ അതിർത്തിയിൽ പാക്കിസ്ഥാൻ ചെക്പോസ്റ്റ് കടന്ന് ഇന്ത്യൻ മണ്ണിലെത്തിയ അഭിനന്ദനെ ഇന്ത്യൻ അതിർത്തിയിൽ അതിർത്തിരക്ഷാ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു തുടർന്ന് അമൃത്സർ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ പാലം വ്യോമസേനാ വിമാനത്താവളത്തിലെത്തിച്ചു

ഇന്ന് ന്യൂഡൽഹിയിലെ എയിംസിൽ അദ്ദേഹത്തെ വിശദ വൈദൃപരിശോധനക്ക് വിധേയനാക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട മണിക്കൂറുകളോളം നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അഭിനന്ദനെ പാക്കിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത് ഉച്ചയോടെ ലാഹോറിലെത്തിച്ച അഭി നന്ദനെ അഞ്ചരയോടെ വാഗയിലെ പാക്കിസ്ഥാൻ ചെക്പോസ്റ്റിൽ എത്തി ച്ചെങ്കിലും നാലര മണിക്കൂറിലേറെ നടപടിക്രമങ്ങൾ തുടർന്നു

പ്രത്യേക സാഹചര്യം മുൻനിർത്തി ഇന്നലെ വൈകീട്ട് അതിർത്തിയിലെ പതാക താഴ്ത്തുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ഇന്ത്യ ഉപേക്ഷിച്ചിരുന്നു രാത്രി വൈകിയിട്ടും നൂറുകണ ക്കിനാളുകൾ ദേശീയപതാക വീശിയും മുദ്രാവാകൃം വിളിച്ചും അഭിനന്ദനെ സ്വീകരിച്ചു

അഭിനന്ദന്റെ അസാമാന്യ ധീരതയിൽ രാജ്യം അഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു അഭിനന്ദന്റെ സമചിത്തതയും അസാമാന്യ ധൈര്യവും രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രചോ ദനമാകുമെന്ന് രാജ്യരക്ഷാ മന്ത്രി നിർമ്മല സീതാരാമൻ ട്വീറ്റ് ചെയ്തു കേന്ദ്ര മന്ത്രിമാരായ രാജ്നാഥ്സിംഗും രവിശങ്കർ പ്രസാദും അദ്ദേഹത്തിന്റെ മടങ്ങി വരവിനെ സ്വാഗതം ചെയ്യുന്നതായി ട്വിറ്റിൽ കുറിച്ചു

ജെ പി പ്രസിഡന്റ് അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സി

എം ജന റൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കശ്മീർ മുൻ മുഖ്യ മന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവരടക്കം നൂറുകണക്കിന് നേതാക്കൾ അഭി നന്ദന് ആശംസകൾ നേർന്നു ദർവ്വട്ടെഴ കേന്ദ്ര ഗവൺമെന്റ് സിമിയുടെ നിരോധനം അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലും വർഗീയത വളർത്തുന്ന നടപടിക ളിലും സംഘടന ഇപ്പോഴും സജീവമാണെന്ന് വിലയിരുത്തിയാണ് നിരോ ധനം നീട്ടിയത്

ഇന്ത്യൻ സേന തിരിച്ചടിച്ചതോടെ പാക്കിസ്ഥാൻ പിന്മാറി എട്ടുദിവ സമായി നിയന്ത്രണ രേഖയിൽ പാക്കിസ്ഥാൻ വെടി നിർത്തൽ ലംഘനം തുടരുകയാണ് ദർവ്വട്ടെഴ ഭീകരവാദികൾക്കെതിരെ രാഷ്ട്രം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണി തെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഭീകരവാദം നേരിടാൻ സൈന്യത്തിന് ശേഷിയുണ്ടെന്നും സൈന്യ ത്തിന്റെ നേട്ടം സ്വന്തം നേട്ടമായി ബി

പി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൊച്ചിയിൽ എൽ ഡി എഫ് കേരള സംരക്ഷണ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ചു പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു കോടിയേരി ദർവ്വെടും പൊതുതെരഞ്ഞെടുപ്പ് നിശ്ചിത സമയത്തുതന്നെ നടത്തുമെന്ന് മുഖ്യ തെര ഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ ലക്നൌവിൽ അറിയിച്ചു ഉത്തർപ്ര ദേശിലെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ കമ്മീഷൻ അംഗ ങ്ങൾക്കൊപ്പം എത്തിയതായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധ പ്പെട്ട പരാതികൾ സ്വീകരിക്കാൻ കമ്മീഷൻ സി വിജിൽ ആപ്സിക്കേഷൻ ഉടൻ ആരംഭിക്കുമെന്ന് അറോറ അറിയിച്ചു പരാതിക്കാരുടെ പേരുകൾ രഹസ്യ മായി വെയ്ക്കാൻ ഇതിൽ സംവിധാനമുണ്ടാകും പുതിയ വിജ്ഞാപനപ്ര കാരം സ്ഥാനാർത്ഥികൾ വിദേശത്തെ സ്വത്ത് വിവരങ്ങളും നൽകേണ്ടിവരു മെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ദർവ്വെട്ടറ പട്ടയം നൽകാനാവാത്ത പുറംപോക്കുകളിൽ കഴിയുന്നവരെ പുനരധി വസിപ്പിക്കാൻ ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖ രൻ കോഴിക്കോട്ട് പറഞ്ഞു വനാതിർത്തികളിലും പുഴയോരങ്ങളിലും റോഡ് പുറംപോക്കിലും കഴിയുന്നവർക്ക് നിയമപ്രകാരം പട്ടയം നൽകാനാവില്ല പുനരധിവാസത്തിന് അവർ സന്നദ്ധരാകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു

എം കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരു ത്തിയില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതിയായിരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് കേശവ ചന്ദ് യാദവ് പറഞ്ഞു കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേ ഷിന്റെയും ശരത്ലാലിന്റെയും ബലികുടീരങ്ങളിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആരംഭിച്ച ധീരസ്മൃതിയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേശവചന്ദ് യാദവ് ദർവ്വെട്ടറ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൂടുംബസഹായ ഫണ്ട് സമാഹരണത്തിന് യു ഡി എഫ് ദേശീയ സംസ്ഥാന നേതാക്കൾ ഇന്ന് കാസർകോട് ജില്ലയിൽ ഫണ്ട് സ്വരൂപിക്കും കാഞ്ഞങ്ങാട് നഗരത്തിൽ എ

സി ജനറൽ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ഫണ്ട് പിരിവിന് നേതൃത്വം നൽകും കാസ്ർകോട്ട് പി കെ കുഞ്ഞാലിക്കു ട്ടിയും രമേശ് ചെന്നിത്തലയും പിരിവിനിറങ്ങും മറ്റ് സ്ഥലങ്ങളിൽ കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് എം കെ മുനീർ കെ മുരളീധരൻ ബെന്നി ബഹനാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഫണ്ട് പിരിവിനായി ഇറങ്ങും

ഡി എഫിന്റെ കേരള സംരക്ഷണ യാത്രകൾ ഇന്ന് തൃശൂരിൽ സമാ പിക്കും

വൈകീട്ട് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം

ദർവ്വെട്ടറ കൊച്ചിയിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിലെ അവസാന മത്സര ത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു

പി ജയരാജൻ ആവശ്യപ്പെട്ടു

പൊതു മേഖലാ സ്ഥാപനങ്ങൾ വിൽക്കലല്ല സംരക്ഷിക്കലാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ

പത്തനംതിട്ട ഇരവിപേരൂർ സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച നീതി ക്ലിനിക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹനദാസ് ഉത്തരവ് നൽകിയ ട ത്

കൂടുതൽ പേർക്ക് പദ്ധതി പ്രയോജനപ്പെടാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതനുസരി ച്ചാണ് നടപടി ഇടുക്കി ജില്ലയിലെ ആശാ പ്രവർത്തകരുടെ ഒരുദിവസത്തെ ആശാ ഫെസ്റ്റ് ചെറുതോണിയിൽ സമാപിച്ചു

പിയാണ് ഫെസ്റ്റ് ഉദ്ഘാ ടനം ചെയ്തത്

രംഭട്ടിട്ടുള ലോക വനിതാദിനത്തിന് മുന്നോടിയായി സാമൂഹൃസുരക്ഷാ മിഷനും വനിതാ ശിശുവികസന വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഇന്ന് കോഴിക്കോട്ട് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കും മന്ത്രി ടി